ത വന്ദേഭാരത് ദൌത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ഏഴ് വിമാനങ്ങൾ സർവ്വീസ് നടത്തും

വാർത്തകൾ വിശദമായി പൊതുഗതാഗതം പുനരാരംഭിച്ചപ്പോൾ ബസുകളിലും ഓട്ടോറിക്ഷകളിലും അനുവദിച്ചതിൽ ഏറെ ആളുകൾ യാത്ര ചെയ്യുന്നതും മാസ്കുകൾ ഉപയോഗിക്കാത്തതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സംഭവങ്ങളിൽ ഇത്തരം കേസെടുക്കാൻ നിർദേശം നൽകിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവന്തപുരത്ത് പറഞ്ഞു ജനങ്ങൾ റെയിൽപാളങ്ങളിൽ നടക്കുന്നതും ഇരിക്കുന്നതും തടയാൻ പൊലീസ് ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പൊലീസിന് നൽകുന്ന മഴക്കോട്ട് വ്യക്തി സുരക്ഷാ കിറ്റായി രൂപാന്തരപ്പെടുത്താൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ പദ്ധതി ആവിഷ്ക്കരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

ഇവർക്കാവശ്യമായ അരോഗ്യ പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ പോർട്ടൽ വഴി ലഭ്യമാക്കും

സംസ്ഥാനത്ത് ഏറ്റവുമധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ

കൊല്ലം പത്തനംതിട്ട വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചത്

ശശിധരൻ

അബുദാബിയിൽ നിന്നും മുംബൈയിൽ നിന്നും എത്തിയ ഓരോർത്തർക്കാണ് കോവിഡ് ബാധിച്ചത് ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകൻ ഉൾപ്പെടെ അഞ്ച് പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് അബുദാബിയിൽ നിന്നും കുവൈത്തിൽ നിന്നും കരിപ്പൂരിലെത്തിയ രണ്ടു പേർക്കും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വടകര സ്വദേശിയായ ആരോഗ്യ പ്രവർത്തകനും കുവൈത്തിൽ നിന്നും കണ്ണൂരിലെത്തിയ മറ്റു രണ്ടു പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് തൃശൂർ ജില്ലയിൽ മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

നേരത്തെ ഇവരുടെ വീട്ടിലെ മുതിർന്ന വ്യക്തിക്ക് കോവിഡ് ബാധിച്ചിരുന്നു

ദുബായിൽ നിന്നും കൊച്ചിയിലെത്തിയ അവർ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരുന്നു കോവിഡ് പരിശോധനയിൽ പോസിറ്റീവ് ആയതിനെ തുടർന്ന് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളജിലേക്ക് മാറ്റി

ദേദ രാവിലെ ഏഴുമുതൽ വൈകീട്ട് ഏഴുവരെ ജില്ല വിട്ട് യാത്ര ചെയ്യാൻ പൊലീസ് പാസ് ആവശ്യമില്ലെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് അറിയിച്ചു എന്നാൽ രാത്രി ഏഴിനും രാവിലെ ഏഴിനുമിടയിൽ അന്തർ ജില്ലാ യാത്രകൾക്ക് പാസ് ആവശ്യമാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ രാത്രിയാത്ര അനുവദിക്കൂവെന്നും ഡിജിപി പറഞ്ഞു രേര പ്രവാസി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യത്തിൽ യുണൈറ്റഡ് എമിറേറ്റ്സിൽ നിന്ന് നാല് പ്രത്യേക വിമാനങ്ങളും ഒമാനിൽ നിന്ന് മൂന്ന് വിമാനങ്ങളും ഇന്ന് സർവ്വീസ് നടത്തും

മസ്ക്കറ്റിൽ നിന്ന് വരുന്ന മൂന്ന് വിമാനങ്ങളിലൊന്ന് കൊച്ചിയിലും മറ്റൊന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് ബോധഗയയിലും ലാന്റ് ചെയ്യും

രുര കൊച്ചി വിമാനതാവളത്തിൽ നിന്നും ആഭ്യന്തര വിമാന സർവ്വീസുകൾ തിങ്കളാഴ്ച്ച ആരംഭിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിമാന സർവ്വീസിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അനുമതി നൽകിയതോടെ കൊച്ചി വിമാനത്താവളം ഒരുങ്ങി മുപ്പതു ശതമാനം സർവ്വീസുകൾ നടത്താനാണ് വ്യോമയാന മന്ത്രാലയം അനുമതി നൽകിയത്

വെബ് ചെക്ക് ഇൻ ആരോഗ്യസേതു മൊബൈൽ ആപ്പ് സ്വയം വിവരം നൽകൽ മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തേണ്ടതാണ്

കണ്ണൂരിൽ നിന്ന് ഇന്നലെ അതിഥി തൊഴിലാളികളുമായി മറ്റൊരു ട്രെയിൻ ജാർഖണ്ഡിലേക്ക് യാത്ര തിരിച്ചു

എല്ലാവർക്കും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി

രേര ഇന്നലെ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഈദുൽ ഫിത്വർ നാളെ ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു ചെറിയ പെരുന്നാൾ നാളെയായിരിക്കുമെന്ന് കേരള ഹിലാൽ കമ്മറ്റിയും അറിയിച്ചിട്ടുണ്ട്

കോവിഡ് സാഹചര്യത്തിൽ പെരുന്നാൾ നമസ്കാരം വീടുകളിൽ ആയിരിക്കും രമേ കോവിഡിന് ശേഷം ഇന്ത്യ കൂടുതൽ അത്മവിശ്വാസത്തോടെ ഉയർന്നുവരുമെന്നും നേട്ടങ്ങളുടെ നാടായി മാറുമെന്നും കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു വാണിജ്യ വ്യാപാര സംരംഭങ്ങളുടെ സുരക്ഷിത കേന്ദ്രമായി തീരുന്ന ഇന്ത്യയുമായി സഹകരിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ടുവരുമെന്നും അദ്ദേഹം സ്വകാര്യ ടി വി ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു

നിലവിൽ ഏഴ് മിനിറ്റാണ് പരസ്യത്തിന് അനുവദിച്ചിരിക്കുന്നത്

രേര കേന്ദ്ര ജീവനക്കാരുടെ ഡി എ മരവിപ്പിച്ച നടപടിയും മർമ്മപ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കലിനും എതിരെ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്പോയീസ് ആന്റ് വർക്കേഴ്സും പെൻഷൻ സംഘടനകളും രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു എറണാകുളത്ത് ഹെഡ്പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോൺഫെഡറേഷൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു രേര സംസ്ഥാനത്തെ കോളേജുകൾ ലോക്ഡൌണിന് ശേഷം ജൂൺ ഒന്നിന് തുറക്കാൻ നടപടിയെടുക്കണമെന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് നിർദേശിച്ചു